വില കിട്ടാൻ അവശ്യസാധന നിയമം ഭേദഗതി ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രി നിർമ്മലാ സീതാരാമൻ പരിഷ്കരണ നടപടി കൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സ്കാർഗ്ഗതം ചെയ്തു

രണ്ടാം ഘട്ടത്തിന് ഇന്റ് തുടക്കമാകും

മായി ബോധവൽക്കരണ പരിപാടികൾ കേരളത്തിൽ പൊതുജന പങ്കാളിത്തതോടെ വിവിധ പരിപാടികൾ

ധാനൃങ്ങൾ ഭക്ഷ്യ എണ്ണകൾ എണ്ണക്കുരുക്കൾ പയർ വർഗ്ഗങ്ങൾ ഉള്ളി ഉരുളക്കിഴങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള കാർഷിക ഭക്ഷ്യ വസ്തുക്കളുടെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു ദേശീയ ദുരന്തങ്ങൾ വിലക്കയറ്റം ക്ഷാമം തുടങ്ങിയ അസാധാരണമായ സാഹച രൃങ്ങളിൽ സംഭരണത്തിന് പരിധി ഏർപ്പെടുത്തും

കർഷകർക്ക് കൂടുതൽ വില ലഭിക്കാനും വിളകൾ പാഴായി പോകുന്നത് കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കും കാർഷിക വിപണി പരിഷ്കരണം വഴി കർഷകർക്ക് വിപണി തെരഞ്ഞെടുക്കാൻ അവസരം ലഭിക്കും ഇതിനായി നിയമം കൊണ്ടുവരുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു

നടപടികൾ ഗ്രാമീണ സമ്പദ് വൃഷ്ണിൾ ് ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

കാർഷിക മേഖലയിൽ നൂതന സംരംഭങ്ങൾ കർഷകരുടെ ആദായം വർദ്ധിപ്പിക്കാൻ സഹായകമാണെന്ന് ശ്രീ

കർഷകർക്ക് മുൻപൊരി ക്കലും ലഭിക്കാത്ത ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് കർഷകരുടെ ശാക്തീകരണത്തിലൂടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ദീർഘവീക്ഷണമാണ് ഇ്ത്ലൂടെ പ്രകടമാകുന്നത് കർഷകർക്കുള്ള പ്രഖ്യാപ്പനിങ്ങളിൽ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ശ്രീ

നരേന്ദ്ര മോദിയുടെ കർഷക രക്ഷാ പദ്ധതി ലോക്ത്തിന് തന്നെ മാതൃകയാണെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു

ദുബായിൽ നിന്നു കൊച്ചിയി ലേക്കും അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കുമാണ് ഈ വിമാനങ്ങൾ

എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ വിമാനങ്ങളിലാണ് യാത്രക്കാരെ എത്തിക്കുക ഇന്ന് റ്റ്പ്പെട്ട് ദുബായിൽ നിന്ന് വിമാനം കൊച്ചിയിൽ എത്തുണ്ടിത്തോടെ രണ്ടാം ഘട്ടം ആരംഭിക്കും

എസ് ജലാശ്വ മാലദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു

ഇതുവരെ ആയിരത്തിലധികം ട്രെയിനുകൾ സർവ്വീസ് നടത്തിയതായി റെയിൽവേ മന്ത്രാ ലയം അറിയിച്ചു കുടിയേറ്റ തൊഴിലാളികൾ വിനോദ സഞ്ചാരികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ നാട്ടിലെത്തി ക്കാൻ ഈ മാസം ആദ്യം മുതലാണ് ശ്രമിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്

ഹർഷവർധന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്ക്ക്പിഡിനെ സംബന്ധിച്ച മന്ത്രിതല സമിതി യോഗത്തിലൂാണ് ഇക്കാര്യം അറിയിച്ചത്

ഡെങ്കിപ്പനി നിയന്ത്രണത്തിൽ പൊതുജന പങ്കാളിത്തം അനിവാര്യം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ഡെങ്കിപ്പനി വ്യാപനവും മരണങ്ങളും കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനായി രാജ്യമെമ്പാടും വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഡെങ്കിപ്പനി ബാധയ്ക്കെതിരെ അതീവ ജാഗ്രതാ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി കെ

ശൈലജ പറഞ്ഞു

അതിനിടെ ഇന്ന് മുതൽ ആഴ്ചയിൽ ആറ് ദിവസവും സർക്കാർ ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് സർക്കാർ ഉത്തരവിറക്കി

മദ്യശാലകൾ പൂട്ടണമെന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് നടപടി

ഇന്നലെ ആരും രോഗമുക്തി നേടിയിട്ടില്ല